അവസാന ഘട്ടത്തിൽ കോഴിക്കോട് ജില്ലയിൽ പുതുതായി ആർക്കും എച്ച്

പനി സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് ആര്യോഗ്യവകുപ്പ്

പുനപരിശോധിക്കണ്ട്മുന്ന് സൂപ്രീംകോടതി

തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇന്ന് യോഗം ചേരും

ബന്ധിപ്പിക്കുന്ന വീഡിയോ കോൺഫറൻസിങ്ങ് സംവിധാനത്തിന് തുടക്കമായി

പോലീസും ടെക്നിക്കൽ കമ്മിറ്റിയും ഉദ്യോഗസ്ഥരും ഇന്ന് അവലോകനയോഗം ചേർന്നു

നാളെ പൊളിക്കുന്ന എച്ച്

ഒ ആൽഫ ഷെറിൻ ഫ്ളാറ്റുകളുടെ നിയന്ത്രണം പോലീസ് ഏറ്റെടുത്തു

ഫ്ളാറ്റ് തകർക്കുന്ന സമയത്ത് വൈദ്യൂതി ടെലിഫോൺ ബന്ധം വിച്ചേദിക്കും

ഫ്ളാറ്റ് പൊളിക്ക്ലിന്റെ മോക് ഡ്രിൽ ഇന്ന് നടക്കുകയാണ്

ആവിഷ്ക്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്ന ഇന്റർനെറ്റ് സേവനത്തിന്മേലുള്ള നിയന്ത്രണം പുനഃപരിശോധിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി ഓരോ ഏഴ് ദിവസവും നിയന്ത്രണങ്ങൾ പുനരവലോകനം ചെയ്യണമെന്നും ജസ്റ്റിസ് എൻ

രമണയുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ ബെഞ്ചിന്റെ വിധിയിൽ പറയുന്നു അതേസമയം കശ്മീരിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയില്ലെന്നും പരമോന്നത കോടതി വ്യക്തമാക്കി

വിഷയത്തിൽ ദേവസ്വംബോർഡിന് സ്വതന്ത്ര നിലപാട് എടുക്കാമെന്നാണ് ഗവൺമെന്റ് നിലപാട് യുവതീ പ്രവേശന കേസുകൾ പരിഗണിക്കാൻ സുപ്രീംകോടതി ഒമ്പതംഗ ഭരണഘടനാ ബഞ്ച് രൂപീകരിച്ചതിന് പിന്നാലെയാണ് ദേവസ്വം ബോർഡിന്റെ നിർണായകമായ നീക്കം

പുതുക്കിയ ഉത്തരവ് അനുസരിച്ച് രണ്ടാം വർഷ ഹയർ സെക്കൻ്ററി പരീക്ഷയിൽ ഉന്നത പഠനത്തിന് അർഹരായ വിദ്യാർത്ഥികൾക്ക് മൂന്ന് വിഷയങ്ങളുടെ വരെ മാർക്ക് മെച്ചപ്പെടുത്താം തോറ്റ വിഷയത്തിൽ സേ പരീക്ഷ എഴുതുന്നവർക്ക് ആ വിഷയത്തിന് പുറമെ മൂന്ന് വിഷയങ്ങൾ കൂടി ഇംപ്രൂമ്പ് ചെയ്യാൻ കഴിയും നിലവിൽ ജയിച്ചു ഒരു വിഷയത്തിനു മാത്രിമേ ഇംപ്രൂവ് ചെയ്യുന്നതിന് അവസരമുണ്ടായിരുന്നുള്ളൂ കളിയിക്കാവിള അന്വേഷണം കളിയിക്കാവിളയിൽ പോലീസ് സബ് ഇൻസ്പെക്ടറുടെ കൊലപാതകത്തിൽ കേരള തമിഴ്നാട് പോലീസ് അന്വേഷണം ഊർജിതമാക്കി കേസിലെ പ്രതികളായ യുവാക്കൾ മുമ്പ് ജയിലിൽ കഴിഞ്ഞപ്പോൾ കൂടെയുണ്ടായിരുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള തടവുകാരെ ചോദ്യം ചെയ്യുകയാണ് സംയുക്ത അന്വേഷണത്തിന്റെ ഏകോപനത്തിനായി കേരള പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിച്ചു പ്രതികൾക്ക് കേരളത്തിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ എന്ന് സംഘം അന്വേഷിക്കും

മുരളീധരൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ നാളെയും മറ്റന്നാളും കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും നാളെ വൈകിട്ട് കോഴിക്കോട് ബീച്ചിലെ കൌമുദി നൈറ്റിലും മന്ത്രി സംബന്ധിക്കും

രാമകൃഷ്ണൻ രാത്രികാലങ്ങളിൽ നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിത കേന്ദ്രവും പ്രഭാത ഭക്ഷണവും നൽകുമെന്ന് മന്ത്രി ടി

ദൂരയാത്ര ചെയ്യുന്നവർക്ക് വഴിയോര വിശ്രമ കേന്ദ്രങ്ങളും ഒരുക്കുമെന്നും മന്ത്രി കോഴിക്കോട് തിരുവള്ളൂരിൽ പറഞ്ഞു

എയും ഗുരുവായൂർ ദേവസ്വംബോർഡ് മുൻ ചെയർമാനുമായ പി

മോഹനകൃഷ്ണൻ അന്തരിച്ചു

എടപ്പാൾ സ്വകാര്യ ആശുപത്രിയിയിൽ ഇന്ന് രാവിലെ യായിരുന്നു അന്ത്യം

ബാംബു കോർപ്പറേഷൻ ചെയർമാനായിരുന്നു പട്ടയമേള മലപ്പുറം ജില്ലാതല പട്ടയമേള ്മ്യന്ത്രി ഇ

മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഹൈക്കോടതിയിൽ നടന്ന ചടങ്ങിൽ ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ അദ്ധ്യക്ഷനായി

കാറിലുണ്ടായിരുന്ന മഹാരാഷ്ട്ര സ്വദേശികളായ രണ്ടു പേരെ അറസ്റ്റ് ചെയ്തു യേശുദാസ് മലയാളികളുടെ മനസിൽ പാട്ടിന്റെ പാലാഴി തീർത്ത ഈ മധുര ശബ്ദത്തിന് ഇന്ന് എൺപതാം പിറന്നാൾ ഗാന ഗന്ധർവ്വൻ കെ

യേശുദാസിന് ജന്മദിനാശംസയുമായി നാടെങ്ങും അദ്ദേഹത്തിന്റെ നിത്യസുന്ദര ഗാനങ്ങൾ ഒഴുകിപ്പരക്കുകയാണ്

ഇന്ത്യയിലെ ഏറെക്കുറെ എല്ലാ ഭാഷകളിലും അദ്ദേഹം പാടി മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ നേടിയ യേശുദാസ് നിരവധി സംസ്ഥാനങ്ങളുടെയും പുരസ്കാരങ്ങൾ നേടി പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ ഉൾപ്പെടെയുള്ള ബഹുമതികൾ നൽകി രാഷ്ട്രം യേശുദാസനെ ആദരിച്ചു

മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴിനാണ് കളി